കോൺഗ്രസിന്റെ രണ്ടു സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും ബിജെപി പട്ടിക നാളത്തേയ്ക്ക് നീണ്ടേയ്ക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ ഒന്നാംനമ്പർ ആഭ്യന്തര് ടെർമിനൽ നാളെ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകും

സുനിൽകുമാർ സാഫ്കപ്പ് വനിതാ ഫുട്ബോൾ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ

എഫിന്റെയും യു

രണ്ട് മുന്നണികളിലും കൂടി ഒമ്പത് എം

എന്നാൽ വടകരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന് ഇതിനകം വ്യക്തമായിക്കഴിഞ്ഞു അതേസമയം ബിജെപിയുടെ കാര്യത്തിൽ പത്തനംതിട്ട കീറാമുട്ടിയായി ശേഷിക്കുകയാണ് ഇതുവരെ അവിടേക്ക് പരിഗണിച്ച പി

ശ്രീധ രൻപിള്ള മത്സരിക്കേണ്ടതില്ലെന്ന് ദേശീയനേതൃത്വം നിർദ്ദേശിച്ചതായി സൂചനയുണ്ട് സംസ്ഥാനത്തെ ബിജെപി സ്ഥാനാർഥി പട്ടിക ഇന്ന് വൈകീട്ടോ നാളെയോ പ്രഖ്യാപിക്കും ഇന്ന് പുലർച്ചെ ഒരു മണിവരെ നീണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം സ്ഥാനാർഥികളെ സംബന്ധിച്ച തീരുമാനം എടുത്തു ഇത് പരിശോധിച്ച് അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ എടുക്കുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി

മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥാനാർഥികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്

മറ്റുന്നാൾ എൻ

സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർഥി പട്ടിക യിൽ കേന്ദ്ര നേതൃത്വം കാര്യമായ മാറ്റങ്ങൾ വ്രുത്തിയിട്ടുണ്ടെന്നാണ് സൂച ന

മുരളീധരനും വയനാട്ടിൽ ടി

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷമായിരിക്കും രണ്ടു മണ്ഡലങ്ങളിലെയും ഔദ്യോഗിക സ്ഥാനാർഥി പ്രഖ്യാപനം

സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കി എൽഡിഎഫ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പാർലമെന്റ് അസം ബ്ലി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയ എൽ ഡി

മൂന്ന് ഘട്ടങ്ങളായാണ് പര്യട നം ക്രമീകരിച്ചിരിക്കുന്നത്

ഹോളി ആഘോഷ ത്തിന്റെ തലേനാളായഇന്ന് ഹോളി നിറങ്ങൾ എന്ന പേരിലായിരിക്കും നരേ ന്ദ്രമോദിയുടെ പ്രസംഗമെന്ന് ബി ജെ

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഭിന്നശേഷിക്കാർക്ക് വോട്ടവകാശം രേഖപ്പെടുത്താൻ വാഹന സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ ഒന്നാം നമ്പർ ആഭ്യന്തര ടെർമിനൽ നാളെ പൂർണമായും പ്രവർത്തനസജ്ജമാകും

ടെർമിനൽ പൂർണമായും പ്രവർത്തനസ്ജ്ജമാകുന്നതിന്റെ ഭാഗമായി നാളെ വൈകീട്ട് ടെർമിനൽ ഒന്നിന്റെ മുന്നിൽ കഥകളി അരങ്ങേറും

തിരഞ്ഞെടുപ്പിനുശേഷം മൊറട്ടോറിയം ദീർഘിപ്പിച്ച് ഉത്തരവിറക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി നേപ്പാളിലെ ബിരാത് നഗറിൽ സാഫ് വനിതാ ഫുട് ബോൾ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ബംഗലൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് പാലക്കാട് പോളി ടെക് നിക്ക് കോളേജിൽ കൊടിയേറി

രണ്ടാംഗഡുവായ ഒരുലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ചശേഷം ഏപ്രിൽ അഞ്ചിനകം ബ്രാങ്ക് പേ ഇൻ സ്ലിപ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയ്ക്ക് സമർപ്പിക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നു

സംഘത്തിന് വാഹനം ഏർപ്പാടാക്കി നൽകിയ ആൾ ഉൾപ്പടെയാണ് കസ്റ്റഡിയിലായത് തിരിച്ചറിയൽ നടപടികൾക്ക് ശേഷം ഇവരുടെ അറസ്റ് രേഖപ്പെടുത്തും യുവാവ് പെൺകുട്ടിയുമായി എറണാകുളത്തെത്തിയ ശേഷം ട്രെയിനിൽ കേരളം വിട്ടതായി സംശയിക്കുന്നു

പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയ സംഘത്തിലെ ചിലർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്

കൂടുതൽ സ്ഥലങ്ങളിൽ സൂര്യാഘാതമേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്

വീടിനു മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷ ങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെ ടുത്തിയത് കഴിഞ്ഞദിവസങ്ങളിൽ പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ എന്നിവി ടങ്ങളിലും ഏതാനുംപേർക്ക് സൂര്യാഘാതമേറ്റിരുന്നു ചൂട് കൂടുന്ന സാഹ ചര്യങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണസേന മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇത് കൃത്യമായി പാലിക്കാൻ ആരോഗൃവകുപ്പും നിർദ്ദേശിച്ചിട്ടുണ്ട് മലപ്പുറം എ ആർ നഗറിൽ വെസ്റ്റ്നൈൽ പനിബാധിച്ച് ആറു വയ സുകാരൻ മരിച്ച പ്രദേശത്ത് വിദഗ്ധസംഘം പരിശോധന തുടങ്ങി കോട്ടയം വെക്ടർ കൺട്രോൾ ഗവേഷണ കേന്ദ്രത്തിലെ സംഘം രാവിലെ കുട്ടിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി സംസ്ഥാന എന്റമോളജി സംഘവും സ്ഥലത്തെത്തുന്നുണ്ട് തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ റുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും

സുരേന്ദ്രൻ അറിയിച്ചു

ലോകത്തിലെതന്നെ മികച്ച സർവ്വീസ് റോബോട്ടായ സാൻബോട്ട് മറ്റന്നാൾ ഫെസ്റ്റിവൽ ഉദ്ഘാ ടനം ചെയ്യും സാൻബോട്ടുമായി സംവദിക്കാൻ അവസരം ഒരുക്കിയിട്ടു ണ്ട്

കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ സ്ഥാപിച്ച മ്യൂസിക് സംവി ധാനം എയർഹോണുകൾ എന്നിവ മൂന്ന് ദിവസത്തിനകം അഴിച്ചുമാറ്റി അതത് ആർ

ഒ ഓഫീസിൽ പരിശോധനയ്ക്ക് ഹാജരാക്കാൻ കണ്ണൂർ റീജ്യണൽ ട്രാൻസ്പോർട്ട് അധികൃതർ നിർദ്ദേശം നൽകി

പ്രസിദ്ധമായ തളിപ്പറമ്പ് തൃച്ചംമ്പരം ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് സമാപിക്കും ഭക്തി പ്രധാനമായ കൂടിപ്പിരിയൽ ചടങ്ങ് ഉച്ചയ്ക്ക് നട ക്കും

ഡൽഹിയിൽനിന്ന് കൊൽക്കത്തയിലേക്ക് പോകുകയായിരുന്ന ഹിമാ ലയൻ ക്യൂൻ ട്രെയിൻ പാളംതെറ്റി

ട്രെയിനിന്റെ ഒരു കോച്ചാണ് പാളം തെറ്റിയത് ആർക്കും പരിക്കില്ല കർണ്ണാടകയിൽ നിർമ്മാണത്തിലിരുന്ന നാലു നില കെട്ടിടം തകർന്നു വീണ് മൂന്നുപേർ മരിച്ചു

സ്ഥലത്ത് ഇപ്പോഴും ഫയർഫോഴ്സും പൊലീസും ഊർജ്ജിത രക്ഷാപ്രവർത്തനം തുടരുകയാണ് പത്തനംതിട്ട പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ട സംഭവത്തിൽ ഒരാളെ പൊലീസ് അറസ്റ്റ് ചെയ്തു